ഗൾഫ് മേഖലയിൽ നിന്ന് ആദ്യ രണ്ട് വിമാനങ്ങൾ വ്യാഴാഴ്ച്ച കേരളത്തിലെത്തും ത തിരികെ എത്തുന്ന പ്രവാസികളുടെ ക്വാറന്റൈനും ചികിത്സാ സൌകര്യങ്ങളും ചർച്ച ചെയ്യാൻ രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേത്വത്വത്തിൽ യോഗം ചേരും ത സംസ്ഥാനത്തെ വാഹനഷോറൂമുകൾക്കും വർക്ക്ഷോപ്പുകൾക്കും പ്രവർത്തനാനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത ജമ്മു കശ്മീരിലെ കുപ് വാഡയിൽ ഭീകരപ്രവർത്തകരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് സി ആർ

എഫ് ജവാൻമാർക്ക് വീരമൃത്യു വാർത്തകൾ വിശദമായി കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മറ്റന്നാൾ മുതൽ ഘട്ടങ്ങളായി തിരികെ കൊണ്ടുവരാൻ നടപടി ആരംഭിച്ചു യുഎഇ യിലും ദുബായിയിലും കഴിയുന്ന മലയാളികളടക്കം പ്രവാസികളെ രണ്ട് പ്രത്യേക വിമാനങ്ങളിൽ വ്യാഴാഴ്ച്ച നാട്ടിലെത്തിക്കും

അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമായിരിക്കും വിമാന സർവ്വീസുകൾ

അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിയിലെ ഇന്ത്യൻ കോൺസുലേറ്റും തയാറാക്കുന്ന പട്ടിക അനുസരിച്ചായിരിക്കും വ്യാഴാഴ്ച്ച പ്രവാസികളുടെ മടക്കം യാത്രാ ചെലവും ഇന്ത്യയിൽ എത്തിയ ശേഷം ആവശ്യമായ ക്വാറന്റൈൻ ചികിത്സാ സൌകര്യങ്ങളും യാത്രക്കാർ തന്നെ നൽകേണ്ടതാണ് നാവിക സേനാ കപ്പലുകളിലും പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിൽ കയറുന്നതിന് മുൻപ് വൈദ്യ പരിശോധനയ്ക്ക് ഇവരെ വിധേയമാക്കും രോഗ ലക്ഷണങ്ങൾ ഇല്ലാത്തവരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കു നാട്ടിലെത്തിയാൽ പരിശോധനയും ക്വാറന്റൈൻ സൌകര്യങ്ങളും അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ ഏർപ്പെടുത്തണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദേശം രാമ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികൾ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്തെത്തുന്ന സാഹചര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം രാവിലെ തിരുവനന്തപുരത്ത് നടക്കും ചീഫ് സെക്രട്ടറി സംസ്ഥാന പൊലീസ് മേധാവി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും

യാത്രാനുമതി ലഭിച്ചവർ കേരളത്തിൽ തിരിച്ചെത്തി തുടങ്ങി ജില്ലാ കലക്ടർമാർ നൽകുന്ന പാസുകളുടെ അടിസ്ഥാനത്തിലാണ് ചെക്പോസ്റ്റ് വഴി ആളുകളെ കടത്തിവിടുന്നത്

വയനാട്ടിലെ മുത്തങ്ങാ ചെക്പോസ്റ്റിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരെ സ്വീകരിക്കാനും പരിശോധനക്കുമായി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

രദേ കുടിയേറ്റ തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അവരിൽ നിന്ന് യാത്രാ ചെലവ് ഈടാക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതവും തെറ്റിധാരണാജനകവുമാണെന്ന് ബി ജെ പി വക്താവ് ഷാനവാസ് ഹുസൈൻ അറിയിച്ചു

ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അവരുടെ വിഹിതം കേന്ദ്രത്തിൽ നൽകാനാണ് പാർട്ടി അധ്യക്ഷ സോണിയാ ഗാന്ധി അടക്കം നേതാക്കൾ തയാറാകേണ്ടതെന്നും ഷാനവാസ് ഹുസൈൻ ഡൽഹിയിൽ പറഞ്ഞു രുര സംസ്ഥാനത്തെ വാഹനഷോറൂമുകൾക്കും വർക്ക്ഷോപ്പുക ൾക്കും പ്രത്യേക നിയന്ത്രിത മേഖലയിലൊഴികെ പ്രവർത്തിക്കാൻ അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഗവൺമെന്റ് അനുവദിച്ച കടകൾ തുറക്കാൻ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച്ച സമ്പൂർണ്ണ ഒഴിവ് ആയിരിക്കുമെങ്കിലും റംസാൻ കാലമായതിനാൽ ഭക്ഷണം പാർസൽ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഉച്ചക്ക് ശേഷം പ്രവർത്തിക്കാം മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പാളം ഇരട്ടിപ്പിക്കൽ പദ്ധതികൾ പുനരാരംഭിക്കാൻ റെയിൽവെയെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും അടക്കം കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് അനുമതി ലഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു രുമ കേരളത്തിൽ ഇന്നലെ ആരിലും കോവിഡ് രോഗം സ്ഥിരീകരിച്ചില്ല തുടർച്ചയായ രണ്ടാം ദിവസമാണ് പുതിയ കോവിഡ് കേസുകൾ ഉണ്ടാവാതിരുന്നത്

രുര കൊല്ലം ജില്ലയിൽ ഒൻപത് പേർക്ക് കൂടി കോവിഡ് ഭേദമായി

തുടരെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കുളത്തൂപ്പുഴ ചാത്തന്നൂർ പ്രദേശങ്ങളിൽ നില മെച്ചപ്പെട്ടു മൂന്നു പേർ മാത്രമാണ് കോവിഡ് പോസിറ്റീവായി ശേഷിക്കുന്നത് അതേസമയം ഇന്നലെ കോവിഡ് ഭേദമായ വയോധികൻ ഹൃദയാഘാതം മൂലം മരിച്ചു

ജില്ലയിൽ നിലവിൽ കോവിഡ് രോഗികൾ ചികിത്സയിൽ ഇല്ല

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

ഇടുക്കി സ്വദേശിയായ ഒരാളും ചികിത്സയിലുണ്ട് കോട്ടയം ജില്ലയിൽ കോവിഡ് സാമൂഹ്യ വ്യാപന സാധ്യതാ പരിശോധനക്ക് സഞ്ചരിക്കുന്ന സാമ്പിൾ കളക്ഷൻ യൂണിറ്റ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കും

ആശാപ്രവർത്തകയായ ഒരാളുടെ ഫലമാണ് ലഭിക്കാൻ ശേഷിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന നാല് പേർ കൂടി ഇന്നലെ രോഗമുക്തി നേടിയതോടെ ജില്ല പൂർണ കോവിഡ് മുക്ത ജില്ലയായി കോടഞ്ചേരിയിലെ ആരോഗ്യ പ്രവർത്തക രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥിനികൾ തമിഴ്നാട് സ്വദേശിയായ ഒരാൾ എന്നിവരാണ് രോഗമുക്തരായത്

മലപ്പുറത്തുനിന്ന് ആകാശവാണി പ്രതിനിധി എം സുരേഷ് ബാബു

എഫ് ജവാൻമാർക്ക് വീരമൃത്യു മറ്റ് രണ്ട് പേർക്ക് പരിക്കേറ്റു ഒരു പ്രദേശവാസിയും മരണമടഞ്ഞു

ഭീകരൻമാർക്കായി സൈന്യം തെരച്ചിൽ തുടരുകയാണ് രുര സാലറി ചലഞ്ചിലെ ഹൈക്കോടതി സ്റ്റേ മറികടക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും അസോസിയേഷൻ എൻജിഒ സംഘ് എന്നീ എൻജിഒ സംഘടനകളാണ് ഗവൺമെന്റ് നടപടിക്കെതിരെ ഹർജികൾ നൽകിയത് രേര ദിശയുടെ കോവിഡ് ഹെൽപ് ലൈനിൽ ലഭിച്ച സംശയങ്ങൾ ഒരു ലക്ഷം കവിഞ്ഞു ഒരു ലക്ഷം തികഞ്ഞ കോളിന് മന്ത്രി കെ

ശൈലജയാണ് മറുപടി നൽകിയത് രുമ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഓരോ കിലോ പയർ വർഗങ്ങൾ അനുവദിച്ചതായി സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു മൂന്ന് മാസത്തേക്കായിരിക്കും പയർ വർഗം വിതരണം ചെയ്യുന്നത്